ബി എസ്

കൊല്ലപ്പെട്ടത് ലഷ്കർ ഇ തൊയ്ബ പ്രവർത്തകർ

ബി എസ്

ബി എസ്

രാജ്യത്ത് കോർപ്പൂഡ് പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ഒരുകൂട്ടം രക്ഷിത്രിക്ക്ൾ നൽകിയ ഹർജി പരിഗണിക്കവേയാണ്തീരുമാനം

സി എം

തമിഴ്നാട്ടിലും രോഗബാധിതരുടെ എണ്ണ്ട് വർദ്ധിക്കുകയാണ്

സർക്കാർ തുടർച്ചയായി കിടക്കകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് വരികയാണെന്നും വിരുന്ന് ഹാളുകൾ കോവിഡ് കെയർ സെന്ററുകൾ ആക്കി മാറ്റുകയാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു

ക്യോന്ദ്രിഡ് മൂലം മരിക്കുന്നവരുടെ സംസ്ക്കാരവുമായി ബന്ധപ്പെട്ട് അന്നീഷ്ട്ടസംഭവങ്ങളും വിവാദങ്ങളും ഒഴിവാക്കുന്നതിനായാണ് നിരീക്ഷണവുമായി ബന്ധ്യപ്പെട്ട മാർഗ്ഗരേഖയിൽ ഇളവുകൾ വരുത്താനും ജമ്മുകശ്മീർ ചീഫ്സെക്രട്ടറി ബി

സുബ്രഹ്മണ്യൻ ഡെപ്യൂട്ട്സ് കമ്മീഷണർമാർക്ക് നിർദ്ദേശം നൽകി സർക്കാർ കാറന്റെൻ ക്കേന്ദ്രങ്ങളിൽ കഴിയുന്നവരെ പരിശോധന ഫലം നെഗറ്റീവ് ആയാലൂടൻ വീട്ടിൽ നിരീക്ഷണത്തിന് അയയ്ക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി

ഉറവിടം കണ്ടെത്താത്ത കേസുകളിൽ ് പ്രിഹാരം കണ്ടെത്താൻ ജനങ്ങളുടെ സഹകരണം ആവശ്യമാണ് നൂടത്തുന്ന യാത്രയുടെ വിശദാംശങ്ങൾ എല്ലാവരും രേഖപ്പെടുത്ത്കിവിയ്ക്കുകയും

ഭീകരവാദ സുരക്ഷാ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് പാകിസ്ഥാനെന്ന് ഭീകരവാദത്തെ കുറിച്ചുളള വാർഷിക റിപ്പോർട്ടിൽ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി ലഷ്കർ ഇ തൊയ്ബ ജയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകൾക്ക് ഇന്ത്യയെ ലക്ഷ്യം വച്ച് പ്രവർത്തിക്കാൻ പാകിസ്ഥാൻ അനുമതി നൽകിയിരിക്കുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മസൂദ് അസറിനെപ്പോലുളള ഭീകരർക്കെതിരെ നടപടി എടുക്കാൻ ഇസ്താമാബാദ് തയ്യാറാവുന്നില്ലെന്നും യു

ഇന്നലെ കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയ പദ്ധതിയെക്കുറിച്ച് മാധ്യമങ്ങളോട് വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം

ഒ റോക്കറ്റുകളുടെയും ഉപഗ്രഹങ്ങളുടെയും നിർമ്മാണപ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുളളവ സ്വകാര്യ പങ്കാളിത്തതോടെ ഫലപ്രദമായി പൂർത്തീകരിക്കാനാകും

ഇന്ത്യൂൻ ബഹിരാകാശ മേഖലയിലെ സ്വകാര്യ പങ്കാളിത്തം സംബസ്ലീച്ച തീരുമാനത്തിന് ഇന്നലെയാണ് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നിൽകീയത്

മെക്സിക്കോ റഷ്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയാണ്